ശ്രീഹരിക്കോട്ടയിൽ കൌണ്ട് ഡൌൺ അല്പ സമയത്തിനകം

സുധാകരൻ സംസ്ഥാനത്തെ വൈദ്യുതി സാഹചര്യം വിലയിരുത്താൻ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതലയോഗം കർണ്ണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസും ജനതാദളും തിരക്കിട്ട കൂടിയാലോചന തുടരുന്നു രാജിവെച്ച അഞ്ച് വിമത എം എൽ എമാർകൂടി സുപ്രീം കോടതി യിൽ ഹർജി നൽകി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം

കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ബോധപൂർവ്വം ആശങ്ക പരത്തുകയാണെന്ന് മന്ത്രി ഡോ തോമസ് ഐസക്

ആർ ഒയുടെ ഏറ്റവും സങ്കീർണ്ണവും വെല്ലുവിളിയും നിറഞ്ഞ ദൌത്യമാണിത്

എസ് എൽ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെ പ്രമുഖർ നാളെ പുലർച്ചെ വിക്ഷേപണത്തിന് സാക്ഷികളാകും

കുന്ദമംഗലം എൻ ഐ ടി റോഡ് നവീകരണവും തോട്ടുമുക്കം കുഴിനക്കിപ്പാറ പാലവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മലപ്പുറം ജില്ലയിലെ പൂർത്തിയാക്കിയ റോഡുകളും പാല ങ്ങളും മന്ത്രി ജി സുധാകരൻ ഇന്നും നാളെയുമായി നാടിന് സമർപ്പിക്കും വിവിധ നിയോജക മണ്ഡലങ്ങളിലെ റോഡ് നവീകരണ പ്രവൃത്തികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാനത്തെ വൈദ്യുതി സാഹചര്യം വിലയിരുത്താൻ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതലയോഗം ചേരും ലോഡ്ഷെഡ്സിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ എന്ന് തീരുമാനിക്കാനാണ് യോഗം ചേരുന്നത്

ചില സ്ഥല ങ്ങളിൽ രാത്രി എട്ടുമുതൽ പത്തുവരെ വൈദ്യുതി നിയ ന്ത്രണം വേണ്ടിവന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകൻ അഖിലിനെ കുത്തിയു ദ്യേസിൽ ഒരാൾ പൊലീസ് പിടിയിലായതായി സൂചന നേമം സ്വദേശി ഇജാബ് എന്ന എസ് എഫ് ഐ പ്രവർത്തകനാണ് കസ്റ്റ ഡിയിലായത് സംഭവത്തിൽ ഏഴുപേർക്കെതിരെ പൊലീസ് കേസെടുത്തിരുന്നു കണ്ടാലറിയാവുന്ന മുപ്പതോളം പേരും കേസിൽ പ്രതികളാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഖിലിൽ നിന്ന് ഇന്ന് മൊഴി എടുത്തേക്കും യൂണിവേ ഴ്സിറ്റി കോളേജിന് നാളെ അവധി നൽകിയിട്ടുണ്ട് ക്യാമ്പസ്സുകളെ കഠാര രാഷ്ട്രീയത്തിൽനിന്ന് മോചിപ്പിച്ച് ജനാധിപത്യ കേന്ദ്രങ്ങളാക്കാൻ അടിയന്തിര നടപടിയെടുക്ക ണമെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

യൂണിവേഴ്സിറ്റി കോളേജിലെ എസ്

ഐയുടെ അക്രമണാത്മക പ്രവർത്തനം അവസാനി പ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് മജീദ് കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് മന്ത്രി ഡോ

ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു

ഇന്ന് ഉച്ചയ്ക്ക് രണ്ടുമണിയ്ക്ക് ഹാജിമാരുടെ ആദ്യ വിമാനം കൊച്ചി യിൽനിന്ന് പുറപ്പെടും

ഇന്നലെ നാല് വിമാനങ്ങൾ സർവ്വീസ് നടത്തി

തട്ടിപ്പിനിരയായ സ്വാശ്രയ സംഘങ്ങളിൽനിന്ന് ഒരുകോടിയി ലേറെ രൂപ തട്ടിയെടുത്തായാണ് പരാതി പൊലീസ് കണ്ടെ ടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ച് ഏറ്റെട്ടുത്തിട്ടുണ്ട് അതിനിടെ കസ്റ്റഡിയിലിരിക്കെ മരിച്ച രാജ്കുമാറിന്റെ മൃത ദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീ ഷൻ തീരുമാനിച്ചു ആദ്യ പോസ്റ്റുമോർട്ടത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായതായി ജസ്റ്റിസ്

നാരായണ കുറുപ്പ് വില യിരുത്തി കർണ്ണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ്സും ജനതാദളും തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ് വിമത എം എൽ എമാരിൽ ഒരാളായ എം

ബി നാഗരാജ് കോൺഗ്രസ്സിൽ തുടരുമെന്ന് ഉറപ്പ് നൽകി യതോടെ ഭരണസഖ്യത്തിന് ആത്മവിശ്വാസം വർദ്ധിച്ചു

എമാരും കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നാണ് സൂചന അതിനിടെ രാജിവെച്ച അഞ്ച് വിമത എം എൽ എമാർ കൂടി സുപ്രീംകോടതിയെ സമീപിച്ചു രാജിയിൽ സ്പീക്കർ തീരുമാനം വൈകിപ്പിക്കുന്നു എന്നാരോപിച്ചാണ്ട് അവർ ഹർജി നൽകിയത് രാജി വെച്ചവരെ അയോഗ്യരാക്കുമെന്ന് സ്പീക്കർ ഭീഷണിപ്പെടുത്തുന്നതായും ഹർജിയിൽ പറയു ന്നു

എൽ

ഇവരുടെ ഹർജിയിലാണ് ചൊവ്വാഴ്ചവരെ തൽസ്ഥിതി തുടരണമെന്ന് കോടതി ആവ ശ്യപ്പെട്ടത്

ജി സി നെറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു

ആർ എഫിന് യോഗൃത നേടി യതായും മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കിരീടപ്പോരാട്ടം ലോഡ്സിലെ ഫൈനലിൽ ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നിന് ആതിഥേയ രായ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ നേരിടും ആര് ജയിച്ചാലും ലോകകപ്പ് ചരിത്രത്തിൽ പുതിയൊരു ചാമ്പ്യന്റെ തുടക്കം കുറിക്കുന്ന മത്സരമായതിനാൽ ഇരു ടീമുകൾക്കും ഇത് അഭി മാന പോരാട്ടമാണ്

നാലുവർഷം മുമ്പ് ഫൈന ലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട ടീമാണ് ന്യൂസി ലാൻഡ് പ്രളയദുരന്തത്തിൽ ഇനിയും മതിയായ നഷ്ടപരിഹാരം ലഭിക്കാത്തവരുടെ പരാതികൾ പരിശോധിച്ച് ഉടൻ പരിഹാ രമുണ്ടാക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു ചാല ക്കുടി പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക ഉപകരണ സഹായ ങ്ങൾ ജനകീയ പങ്കാളിത്ത്തോടെ ലഭ്യമാക്കുന്ന സാന്ത്വന സ്പർശം പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ബോധ പൂർവ്വം ആശങ്ക പരത്തുകയാണെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് ആലപ്പുഴയിൽ കുറ്റപ്പെടുത്തി

ക്യാൻസർ ഉൾപ്പെടെ മാരകരോഗബാധിതർക്ക് ഗവൺമെന്റ് ചെലവിൽ ഒ പി പരിശോധനകളിലും പരിരക്ഷ നൽകുമെന്നും മന്ത്രി അറി യിച്ചു മനുഷ്യന്റെ ഇടപെടൽകൊണ്ടും കാലാവസ്ഥാ വൃതിയാ നത്താലും കഷ്ടപ്പെടുന്ന പ്രകൃതിയെ തിരിച്ചുപിടിക്കാൻ മുള യുടെ തലസ്ഥാന പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രി ഇ

കാസർകോട് പുത്തിഗെ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ പദ്ധതി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഓരോ വിദ്യാലയത്തിലും ഔഷധ ഉദ്യാനം പദ്ധതി കൂത്തു പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി സ്കൂളിൽ മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്തു ഓരോ ജില്ലയിലും അഞ്ച് സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് മുപ്പതോളം ഔഷധ സസ്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയ വളപ്പുകളിൽ നട്ടുപിടിപ്പിക്കും കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമപഞ്ചായത്തിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രം നടത്തുന്ന ശുചീകരണ പ്രവൃത്തിക്ക് മാറ്റമുണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെട്ടു മന്ത്രി ഡോ തോമസ് ഐസക്ക് എഴുതിയ ജനകീയ ബദ ലുകളുടെ നിർമ്മിതി ഊരാളുങ്കൽ സൊസൈറ്റി അനുഭവം എന്ന പുസ്തകം രാവിലെ കോഴിക്കോട് ടൌൺ ഹാളിൽ എഴു ത്തുകാരൻ എം ടി വാസുദേവൻ നായർ പ്രകാശനം ചെയ്യും കേരള സാഹിത്യ അക്കാദമിയാണ് പുസ്തകം പ്രസിദ്ധീകരി ച്ചത് മന്ത്രിമാരായ ടി

രാമകൃഷ്ണൻ എ

ശശീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കോഴിക്കോട് ഓമശ്ശേരിയിൽ ജല്ലറിയിൽ തോക്ക് ചൂണ്ടി കവർച്ചയ്ക്ക് ശ്രമിച്ച സംഘത്തിലെ ഒരാളെ തൊഴിലാളി കൾ പിടികൂടി രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് ഏഴുമണിയോടെ മുഖംമൂടി ധരിച്ചെത്തിയ മൂന്നു പേർ കടയ്ക്കുള്ളിൽ കയറി ഭീഷണിപ്പെടുത്തുകയായിരു ന്നു പിടിയിലായയാൾ ബംഗാൾ സ്വദേശിയാണെന്നാണ് റിപ്പോർട്ട്

വയനാട് മഴ മഹോത്സവത്തിന്റെ ഭാഗമായി മേപ്പാടി അര പ്പറ്റയിൽ ഫൺ ഡ്രൈവ് പരിപാടി സംഘടിപ്പിച്ചു

തലശ്ശേരിയിൽ സ്വർണ്ണ വ്യാപാരിയെ തലക്കടിച്ച് വീഴ്ത്തി അരക്കിലോയിലേറെ തങ്കക്കട്ടി കവർന്ന കേസിൽ മൂന്നു പേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു കൂത്തുപറമ്പ് സ്വദേശി കളായ സ്വരലാൽ അഫ്സൽ കോഴിക്കോട് ചെലവൂരിലെ രഞ്ജിത് എന്നിവരാണ് അറസ്റ്റിലായത്

മാന്നാമംഗലം വനംകൊള്ള കേസിലെ സൂത്രധാരൻ പിടി യിലായി പാലക്കുന്നിലെ വനഭൂമിയിൽ നിന്നും തേക്കുമരം മുറിച്ചുകടത്തിയ കേസിൽ മാന്നാമംഗലം ചേരുംകുഴി സ്വദേശി പാപ്പാടി ഷിജോയെയാണ് വനം വകുപ്പ് ഫ്ളയിംഗ് സ്ക്വാഡ് പിടികൂടിയത് ഏഴ് കേസുകളിൽ വാറണ്ട് നിലനിൽക്കേ ഇയാൾ രണ്ടുവർഷമായി ഒളിവിലായിരുന്നു വിദേശ മദ്യത്തിന്റെ പേരിലും മണത്തിലും രുചിയിലും നടത്തിവന്ന സോഡ വിൽപ്പന കൊല്ലത്ത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് തടഞ്ഞു

രക്ഷിതാക്കൾ നൽകിയ പരാതിയെത്തു ടർന്ന് എക്സൈസ് സഹായത്തോടെയായിരുന്നു പരിശോ ധന കോഴിക്കോട് കൺട്രോൾ റൂം എസ് ഐ ആക്രമിച്ച സംഭ വത്തിൽ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു മൂന്നംഗ സംഘം വെള്ളിയാഴ്ച വൈകിട്ട് ഇടവഴിയിൽ എസ് ഐയെ വള ഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു